സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി മുന്നണികൾ

പത്തനംതിട്ട ജില്ലയിലെ ക്യോന്നിയിൽ എൻ

വിദേശത്തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിസ നിയന്ത്രണങ്ങൾ നീക്കി

കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗൃമന്ത്രാലായം

പ്രാദേശിക നേതാക്കൾക്കൊപ്പം ദേശീയ നേതാക്കളും സജീവമായി പ്രചാരണ രംഗത്ത് കൂടുതൽ വിവരങ്ങളുമായി ശ്യാമ

എയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ളത്

എം

നേതാവ് എം

ജെ പിയിലെയും തൃണമൂൽ കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു

തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ വിവിധ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

നദ്ദ കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ എന്നിവർ എൻ ഡി എ

കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ റിപുൻ ബോറ എന്നിവർ കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇന്ന് പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

എ സംഘടിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യും വൈകുന്നേരം തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സംഘട്ടിപ്പിച്ചിട്ടുള്ള എൻ

ഡി

അതേസമയം സി

ഐഎം കേന്ദ്രുക്കൂർന്നേതാക്കളായ പ്രകാശ് കാരാട്ട് ബൃന്ദാകാരാട്ട് മുഖ്യമുന്തി പിണറായി വിജയൻ എന്നിവർ സംസ്ഥാനത്ത് സജീവമാ്യി പ്രചാരണ രംഗത്താണ്

ഇത് സംബന്ധിച്ച് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും പ്രചാരണത്തിൽ കുട്ടികളെ ഉപയോഗിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വകുപ്പിന് ദേശീയ ശിശുക്ഷേമ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സി

തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ച ് പടക്കം കൈയിലെടുത്ത അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റതായും അദ്ദേഹം അറിയിച്ചു സംഭവത്തിൽ കാരയ്ക്കൽ ജില്ലാ കളക്ടറിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്

മേഖലയിൽ ടി എം സി അനുകൂലികൾക്ക് വോട്ട് നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രമക്കേട് നടന്നതായി നേരത്തെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചിരുന്നു വോട്ടെടുപ്പിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഒരു കേന്ദ്രത്തിൽ ജനങ്ങൾ തടിച്ചുകൂടുകയും മുഖ്യമന്ത്രിയെ ഖെരാവോ ചെയ്യുകയും ചെയ്തതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും കമ്മീഷൻ പറഞ്ഞു

നിരീക്ഷകർ എത്തിയപ്പോൾ മൂവായിരത്തോളം ജനങ്ങൾ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതായും അവർ പറഞ്ഞു

ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇരുപക്ഷവും തമ്മിൽ ആക്രമണം തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല

വെങ്കയ്യ നായിഡു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഒഡീഷയിലെത്തി ഭുവനേശ്വർ വിമാനത്താവളത്തിൽ ഗവർണർ ഗണേഷി ലാൽ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു

നാളെ ഉത്കൽ സർവ്വകലാശാലയുടെ പ്രൂ ബ്ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും

ടി പ്രൊഫഷണലുകൾക്ക് ഗുണകരമാകുന്നതാണ് തീരുമാനം

കോവിഡ് വാക്സിൻ എല്ലാവരിലും അതിവേഗം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി

വരും ദിവസങ്ങളിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം വർധിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

സി ആർ നെഗറ്റീവ് സർട്ടിപ്ചിക്ക്റ്റ് നിർബന്ധമാക്കി ഗുജറാത്ത് സർക്കാർ

സംസ്ഥാന അതിർത്തികൾക്ക് പുറമെ പ്പിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് പരിശോധിക്കാനുള്ള ചെക്ക് പ്രോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്

പള്ളികളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് പ്രത്യേക പ്രാത്ഥനയും കുരിശ്ശിന്റെ വഴിയും നഗരി കാണിക്കൽ ചടങ്ങും ഉൾപ്പെടെ വിവധ പരിപാടികളോടെയാണ് ദുഖവെള്ളി ആചരണം സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശമാണ് ദുഖവെള്ളി ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മറ്റുള്ളവരെ സേവിക്കാൻ സഹാനുഭൂതിയുടെ പാഠമാണ് ക്രിസ്തുദേവൻ പകർന്നു നൽകിയതെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു സ്വന്തം ജീവിതം മാനവിക സേവനത്തിനായി സമർപ്പിക്കുകയും സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും സത്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്ത യേശുക്രിസ്തുവിന്റെ പരമമായ തൃാഗം ദുഖവെള്ളിയിൽ നമ്മേ ഓർമ്മിപ്പിക്കുന്നതായും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പറഞ്ഞു